കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വീണ്ടും ഉന്നയിച്ചു നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോ ടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ സർവ്വകക്ഷി യോഗം കേരളാ കോൺഗ്രസ് ജോസ്

മാണി വിഭാഗം വിളിച്ച സംസ്ഥാന കമ്മിറ്റി യോഗം ഉച്ചയ്ക്ക് കോട്ടയത്ത് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക്കിസ്ഥാൻ മത്സരം ഇന്ന്

പി ദിനേഷ് രാജ്യത്തിന്റെ പുരോഗതിയ്ക്ക് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് ഇതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു ന്യൂഡൽഹിയിൽ അഞ്ചാമത് നീതി ആയോഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാ നമന്ത്രി എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വിക്സനം എല്ലാ വരുടെയും വിശ്വാസം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നീതി ആയോഗിന് പ്രധാന പങ്കുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്ത മാക്കി ദാരിദ്ര്യം തൊഴിലില്ലായ്മ വരൾച്ച പ്രളയം മലിനീകര ണം അഴിമതി അക്രമം എന്നിവയെ ഒറ്റക്കെട്ടായി ചെറുക്ക ണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു കൃഷിനാശവും പ്രകൃതിക്ഷോഭങ്ങളും നേരിടാൻ സംസ്ഥാ നങ്ങൾക്ക് കൂടുതൽ കേന്ദ്ര സഹായം നൽകണമെന്ന് ഡൽഹിയിൽ ചേർന്ന നിതി ആയോഗ് സമ്മേളനത്തിൽ മുഖ്യ മന്ത്രിമാർ ആവശ്യപ്പെട്ടു ചരക്ക് സേവന നികുതി നടപ്പാക്കി യതുവഴി സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന റവന്യൂ നഷ്ടം അഞ്ചുവർഷത്തിന് ശേഷവും കേന്ദ്രം നൽകണമെന്ന് അവർ നിർദ്ദേശിച്ചു ആസൂത്രണ കമ്മീഷന് പകരം രൂപീകരിച്ച നിതി ആയോ ഗിന്റെ കഴിഞ്ഞ നാലുവർഷത്തെ പ്രവർത്തനം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിയില്ലെന്ന് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണ റായി വിജയൻ വിലയിരുത്തി

കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രിയ്ക്ക് മുന്നിൽ വീണ്ടും ഉന്നയിച്ചതായി മുഖ്യ മന്ത്രി പിണറായി വിജയൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു നടപ്പ് സാമ്പത്തിക വർഷം തന്നെ എയിംസിന് തുല്യമായ ഉന്നത മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനവും ചികിത്സാ സൌകര്യങ്ങളും സംസ്ഥാനത്തിന് ലഭ്യമാക്കണമെന്ന് പ്രധാ നമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വെളിപ്പെടു ത്തി

ഇക്കാ രൃത്തിൽ അനുകൂല സമീപനം ഉണ്ടാകുമെന്നാണ് പ്രതീ ക്ഷയെന്നും പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാ നത്ത് രാജ്യാന്തര നില വാ ര ത്തോടെ ആയുർവേദ ഗവേഷണകേന്ദ്രം ആരംഭിക്കണമെന്നും പ്രധാ നമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉറപ്പ് ലഭിച്ച തായും മുഖ്യമന്ത്രി അറിയിച്ചു നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര ഗവൺമെന്റ് വിളിച്ച സർവ്വകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടിയാണ് യോഗം ചേരുന്നത് വ്യാഴാഴ്ച ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്യും കേരളാ കോൺഗ്രസ് എമ്മിലെ ജോസ്

മാണി വിഭാഗം വിളിച്ച സംസ്ഥാന കമ്മിറ്റി യോഗം ഉച്ചു കഴിഞ്ഞ് കോട്ടയത്ത് ചേരും

ജോസഫ് അതിന് തയ്യാറാകാത്തതിനെ ത്തുടർന്നാണ് എതിർ വിഭാഗം യോഗം ചേരുന്നത് പാർട്ടി ചെയർമാനായി ജോസ്

മാണിയെ തെരഞ്ഞെടുത്തതായി അവർ പ്രഖ്യാപിച്ചേക്കും എന്നാൽ യോഗം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പി

ജോസഫ് അറിയിച്ചു

ആലപ്പുഴ വള്ളിക്കുന്നത്ത് പൊലീസുകാരിയെ കാറിടിച്ച് വീഴ്ത്തി തീവെച്ച് കൊലപ്പെടുത്തിയ പൊലീസുകാരന്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്താനായില്ല ആലുവ ട്രാഫിക് സ്റ്റേഷനിലെ സിവിൽ പൊലീസ് ഓഫീസർ അജാസാണ് വള്ളിക്കുന്ന് പൊലീസ് സ്റ്റേഷനിലെ സിവിൽ പൊലീസ് ഓഫീസർ സൌമ്യ പുഷ്കരനെ കൊലപ്പെടുത്തിയത് കൃത്യ ത്തിനിടെ പരിക്കേറ്റ അജാസിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സൌമ്യയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റുമോർട്ടം ചെയ്ത ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക്കിസ്ഥാൻ മത്സരം ഇന്ന് വൈകിട്ട് മൂന്നിന് ലണ്ടനിലെ മാഞ്ചസ്റ്ററിലാണ് മത്സ രം പോയിന്റ് പട്ടികയിൽ മൂന്ന് കളിയിൽനിന്ന് അഞ്ച് പോയിന്റുമായി ഇന്ത്യ നാലാം സ്ഥാനത്തും നാല് കളി യിൽനിന്ന് മൂന്ന് പോയിന്റുമായി പാക്കിസ്ഥാൻ ഒമ്പതാം സ്ഥാനത്തുമാണ്

തേഞ്ഞിപ്പലത്ത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ കോട്ടയം മുന്നിൽ

എറണാ കുളം രണ്ടാം സ്ഥാനത്തും പാലക്കാട് മൂന്നാം സ്ഥാനത്തുമു ണ്ട് ക്ഷേത്രവികസനത്തിന് ഏറ്റവും കൂടുതൽ തുക അനുവ ദിച്ച ഗവൺമെന്റാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു

ഹൈക്കോ ടതിയുടെ അനുകൂല നിലപാടുണ്ടായാൽ മാത്രമേ അവി ടുത്തെ വികസനം സാധ്യമാകൂ എന്നും അദ്ദേഹം ഗുരുവാ യൂരിൽ പറഞ്ഞു വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങൾക്കും വേദപാഠശാലകൾക്കും ധനസഹായം നൽകുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൊല്ലം ജില്ലയുടെ തീരമേഖലയിൽ രണ്ടര കോടി രൂപയുടെ നിർമാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു

ഇരവിപുരം കളീയ്ക്കൽ കടപ്പുറത്തെ തീരദേശ റോഡ് സംരക്ഷണത്തിനും കരുനാഗപ്പള്ളിയിലെ തീരസംര ക്ഷണത്തിനുമാണ് പ്രാധാന്യം തൃശൂർ ജില്ലയിൽ കടലാക്രമണം രൂക്ഷമായ തീരമേഖല യിൽ അടിയന്തിര പ്രതിരോധ നടപടികൾക്ക് മൂന്നു കോടി രൂപ അനുവദിച്ചു കടൽഭിത്തികൾ നിർമ്മിച്ചും ജിയോബാഗ് സ്ഥാപിച്ചും കടലാക്രമണം ചെറുക്കും ഇതുമായി ബന്ധപ്പെട്ട ദീർഘകാല പദ്ധതികൾക്കും അടിയന്തിര പ്രവൃത്തികൾക്കും മന്ത്രി വി എസ് സുനിൽ കുമാറിന്റെ സാന്നിധൃത്തിൽ ചേർന്ന യോഗം രൂപം നൽകി വിജിലൻസ് ആന്റ് ആന്റികറപ്ഷൻ ബ്യൂറോ പാലക്കാട് യൂണിറ്റിനായി നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജ യൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ജില്ലാ ലൈബ്ര റിയ്ക്ക് സമീപം സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ എ കെ ബാലനും കെ കൃഷ്ണൻകുട്ടിയും പങ്കെടുക്കും നിപ കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന താൽക്കാലിക തൊഴിലാളികൾ നടത്തി വന്ന സമരം പിൻവലിച്ചു

മന്ത്രി കെ

ശൈലജയുടെ നിർദ്ദേശപ്രകാരം സമരസമിതി നേതാക്കളുമായി മെഡിക്കൽ കോളേജ് പ്രിൻസി പ്പൽ നടത്തിയ ചർച്ചയെത്തുടർന്നാണ് സമരം ഒത്തുതീർന്ന ത് കൊച്ചിയിൽ നിപ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാ വിന്റെ നില കൂടുതൽ മെച്ചപ്പെട്ടു

കളമശ്ശേരി മെഡി ക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷ ണത്തിലുണ്ടായിരുന്ന മൂന്നുപേരെയും ഡിസ്ചാർജ്ജ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ സാക്ഷരത വ്യാപകമാകുന്ന സാഹചര്യത്തിൽ വിവര സാങ്കേതിക വിദ്യ തുറന്നുതരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി ഇ

അക്ഷയ സംരംഭകർക്ക് ഇടുക്കി കലക്ടറേറ്റ് കോൺഫ റൻസ് ഹാളിൽ ടാബുകൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി

വിജയന്റെ പ്രശസ്തമായ നോവൽ ഖസാക്കിന്റെ ഇതിഹാസത്തിന് അരനൂറ്റാണ്ട് പൂർത്തിയാവുന്നു ഒരു വർഷം നീളുന്ന നോവൽ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ പാലക്കാട് തസ്രാക്കിലെ ഒ

വിജയൻ സ്മാരകത്തിൽ എം

ബേബി ഉദ്ഘാടനം ചെയ്യും

വിവിജയൻ സ്മാരകസമിതിയുടെ നേതൃത്വ ത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കിഫ്ബി പദ്ധതിയിലൂടെ ബജറ്റിന് പുറമെനിന്ന് വിക സനത്തിന് പണം കണ്ടെത്തുന്ന രീതിയാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു

ഇടുക്കി ജില്ലയിൽ സംസ്ഥാന പൊലീസിന്റെ പിങ്ക് പട്രോൾ ആരംഭിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി നടപ്പാക്കുന്ന പിങ്ക് പട്രോൾ ഇടുക്കി അഡീഷണൽ എസ്

മുഹമ്മദ് ഷാഫി സിവിൽ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു

അധ്യാപകനെതിരെ പൊലീസ് കേസെടുത്തു അഞ്ചുകുന്ന് കാപ്പുകുന്നിലെ അശ്വിൻ

പ്രസാദിനെതിരെയാണ് പനമരം പൊലീസ് കേസെ ടുത്തത് ഇയാൾ തൃശ്ശൂരിൽ പോലീസിന് കീഴടങ്ങി യതായി സൂചനയുണ്ട് കോഴിക്കോട് മിഠായിത്തെരുവിൽ വ്യാപാരിക്കുവസായി ഏകോ പന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീന്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കോർപ്പറേഷൻ അടച്ചുപൂട്ടി നിയമാനുസൃത ലൈസൻസിന് അപേക്ഷ നൽകുന്ന മുറയ്ക്ക് സ്ഥാപനം തുറ ന്നുകൊടുക്കുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചു

ഏഴും ഒൻപതും പ്രായക്കാരായ പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ് ചാരിറ്റി തൈലകുന്ന് സ്വദേശി ഹുസൈനെ യാണ് വൈത്തിരി പൊലീസ് അറസ്റ്റ് ചെയ്തത് ഹുസൈനെ തിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു